ശിവസേന നേതാക്കൾ രാജ്ഭവനിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നു

വടക്കൻ കശ്മീരിലെ ബന്ദിപ്പോര ജില്ലയിൽ സുരക്ഷാ സേന രണ്ടു ഭീകരരെ വധിച്ചു

അതേസമയം ശിവസേനാ നേതാക്കൾ രാജ്ഭവനിൽ എത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നു

സിപ്പിക് കോർ കമ്മിറ്റി യോഗം കഴിഞ്ഞെങ്കിലും കോൺഗ്രസ് പാർട്ടി കുറച്ചുകൂടി കാത്തിരിക്കാൻ നിലപാടെടുത്തോടെ അവ്യക്തത തുടരുകയാണ്

സി

നേതാവ് ശരത് പവാറിന്റെ അധ്യക്ഷതയിലാണ് മുംബൈയിൽ യോഗം ചേർന്നത് യോഗത്തിന് ശേഷം എൻ സി

വക്താവ് നവാബ് മാലിക് കോൺഗ്രസ് തങ്ങളുടെ നിലപാട് തീരുമാനിക്കുന്നതു വരെ എൻ സി

തങ്ങളുടെ നിലപാടിനെപ്പറ്റി പ്രഖ്യാപനമൊന്നും നടത്തില്ലെന്ന് മാധ്യമപ്രവർത്തകരെ അറിയിച്ചു

സി

യും കോൺഗ്രസും സഖ്യകക്ഷികളാണെന്നും സംസ്ഥാനത്തെ ഗവൺമെന്റ് രൂപീകരണത്തിൽ സംയുക്ത തീരുമാനമായിരിക്കും കൈക്കൊള്ളുകയെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം ശിവസേന പ്രസിഡന്റ് ഉദ്ധവ് താക്കറെ എൻ സി

നേതാവ് ശരത് പവാറുമായി മുംബൈയിലെ ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തി കേന്ദ്രത്തിലെ എൻ ഡി എ ഗവൺമെന്റിലെ ഏക ശിവസേനാ മന്ത്രി അരവിന്ദ് സാവന്ത് മന്ത്രിസഭയിൽ നിന്ന് രാജിവച്ചു

യോഗത്തിൽ മുതിർന്ന നേതാക്കളായ അഹമ്മദ് പട്ടേൽ കെ

മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാക്കളെ കൂടുതൽ ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതായി ഖാർഗെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ അറിയിച്ചു ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഡോളറിന്റെ സമ്പദ്വൃവസ്ഥയായി ഇന്ത്യയെ മാറ്റാൻ സാധിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു പ്രതിരോധ മേഖലയിലെ നവീന സംവിധാനങ്ങളും കണ്ടുപിടുത്തങ്ങളും ഉൾപ്പെടുത്തി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഡിഫെൻസ് കണക്ട് എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തുടനീളം ആരംഭിച്ച നിരവധി സ്റ്റാർട്ട് അപ്പ് സംരംഭങ്ങൾ വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവുമാണ് പകരുന്നതെന്നും ശ്രീ

പ്രതിരോധ സാങ്കേതിക വിദിയയിലും വരും വർഷങ്ങളിൽ ഇന്ത്യ വൻ കുതിപ്പു നടത്തുമെന്നും രാജ്യരക്ഷാ മന്ത്രി അഭിപ്രായപ്പെട്ടു

പ്രവർത്തനങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു

നാശനഷ്ടങ്ങളുടെ കണ്ട്ക്ക്ടുക്കുന്നതിനായി ദുരിതബാധിത മേഖലകളിൽ ഈ ആഴ്ചക്രിക്കുന്ന് കേന്ദ്ര സംഘം സന്ദർശിക്കും

ആസ്ഥാനമായ ഫോർ സൈറ്റ് ഗ്രൂപ്പും മുംബൈ ആസ്ഥാനമായ മഫത്ലാൽ ഗ്രൂപ്പും സംയുക്തമായാണ് സി

ഗുജറാത്ത് അടിസ്ഥാന സൌകരൃ വികസന ബോർഡിന്റെ ചെയർമാനും കൂടിയായ മുഖ്യമന്ത്രി വിജയ് റൂപാനി പദ്ധതിക്ക് അംഗീകാരം നല്കി

ആശുപിതികളിൽ ലഭ്യമായിട്ടുള്ള ചാർജ്ജ് സൌകര്യങ്ങളും കൂടി ഇതിൽ ക്ളിർപ്പെടുത്തുമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി

പട്ടേൽ ജസ്റ്റിസ്ക് സി ഹ്റരിശങ്കർ എന്നിവർ അടങ്ങിയ വ്യക്തമാക്കിട്ടും രാഷ്ട്രതലസ്ഥാനത്ത് ബഞ്ച് സ്വകാര്യ ആശുപത്രികളിലെയും ന്നെഴ്സിംഗ് ഹോമുകളിലെയും ചാർജ്ജിൽ തുല്യത കൊണ്ടുവരാൻ ഗവണ്മെന്റ് വിജ്ഞാപനം ഇറക്കണമെന്ന പൊതു താല്പരൃ ഹർജിയിന്മേലാണ് കോടതിയുടെ നിരീക്ഷണം

കോടതി ഭാഷ മലയാളമാക്കുന്നതിനുള്ള നടപടിക ളുടെ ഭാഗമായി നിയമധ്വനി എന്ന പേരിൽ പ്രസിദ്ധീകരണം ആരം ഭിച്ചിട്ടുണ്ട്

നിയമങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ആരം ഭിക്കുവാനും യോഗം തീരുമാനിച്ചു

കരസേനയുടെ സംയുക്ത സംഘവും സി

വിജ്ഹാര ലേവ്ദാര പ്രദേശത്ത് തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെരച്ചിൽ

ഭീകരൻ ഇന്നലെ വൈകുന്നേരവും ഒരാൾ ഇന്ന് ഒരു പുലർച്ചെയുമാണ് കൊല്ലപ്പെട്ടത്

ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ ചെന്നൈയിലായിരുന്നു അന്ത്യം ശേഷന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ നിതിൻ ഗഡ്ക്കരി മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ അനുശോചിച്ചു

അദ്ദേഹത്തിന് ആദരാജ്ഞലികൾ അർപ്പിക്കുന്നതിനായി ന്യൂഡൽഹി നിർവാചൻ സദനിൽ ഇന്ന് അനുശോചന യോഗം ചേർന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉന്നത സ്ഥാനം ലഭിക്കുന്നതിൽ ടി

ശേഷൻ മുഖ്യ പങ്കു വഹിച്ചുവെന്നും കമ്മീഷനിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം എന്നും പ്രചോദനമായിരിക്കുമെന്നും അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു

എന്നാൽ അഭിഷേക് വർമ്മ എട്ട് പേർ മത്സരിച്ച ഫൈനലിൽ അഞ്ചാമതായി ഫിനിഷ് ചെയ്തു

ഇന്ത്യയും ചൈനയും പരമാവധി രണ്ട് ക്വാട്ട വീതം ഇതിനകം നേടി കഴിഞ്ഞതിനാൽ എയർ പിസ്റ്റൾ ഇനത്തിലെ ഒളിമ്പിക്സ് കാട്ടകൾ ഇറാൻ നോർത്ത് കൊറിയ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്കാണ് ലഭിച്ചത്

പഞ്ചാബിലെയും ഹരിയാനയിലെയും വിവിധ നഗ്രുങ്ങളിൽ ഇന്ന് നഗർ കീർത്തനം നടക്കുന്നുണ്ട്

വ്യാപാരം സുഗമമാക്കൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങി നിരവധി വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും നിലവിലെ ആഗോള സാമ്പത്തിക സാഹചര്യത്തിൽ വികസനത്തിൽ എല്ലാ രാജ്യങ്ങളിലെയും പൊതുവായ പങ്കാളിത്തമാണ് ലക്ഷ്യമിടുന്നത് ബ്രിക്സ് രാജ്യങ്ങളിലെ വ്യാപാര നിക്ഷേപ പ്രോത്സാഹനത്തിനായി സംയുക്ത കരാറിൽ ഒപ്പു വയ്ക്കും

കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ലക്ഷദ്വീപ് പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ദൌത്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഹൈദരാബാദിൽ ഇന്ന് അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം